ശക്തിയായി യോഗ മാറിയെന്ന് പ്രിധ്യാനമന്ത്രി നരേന്ദ്രമോദി യോഗയെ ദിനചുരൂയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമൃന്തിയുടെ ആഹ്വാനം

നാച്ചുറോപ്പതി കേന്ദ്രം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ അമേരിക്കൻ ജനപ്രതിനിധി സഭ ഇന്ന് വോട്ടിനിടും

ആദ്യ മത്സരത്തിൽ ഓരോ ഗോൾ വീതം നേടി ഡെൻമാർക്കും ഓസ്ട്രേലിയയും പോരാട്ടം തുടരുന്നു മറ്റ് മത്സരങ്ങളിൽ ഫ്രാൻസ് പെറുവിനെയും അർജെന്റീന ക്രെയേഷ്യയേയും നേരിടും

ഡെറാഡൂണിലെ വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന മുഖ്യപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോട്ടി പ്പങ്കാളിയായി ലോകത്തെ ഒന്നാക്കുന്ന ശക്തിയായി യോഗ മാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു യോഗയെ ദിനചരൃയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇന്തൃ ഒട്ടാകെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന യോഗാദിനാചാരണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

അന്വേഷണത്തിൽ യോഗ ലോകത്തിനു തന്നെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് മാറുന്ന ലോകത്തിൽ മനുഷ്യന്റെ ശരീരവും തലച്ചോറും ആത്മാവും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നത് യോഗ ചെയ്യുന്നതിലൂടെയാണ് ഇതുവഴി സമാധാനത്തിന്റെ അനുഭൂതിയാണ് ഉണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തുടനീളം നടന്ന യോഗാദിനാഘോഷ പരിപാടികളിൽ പ്രമുഖർ പങ്കാളികളായി മുംബൈയിൽ അന്താരാഷ്ട്ര യോഗാദിനാചരണ പരിപാടിയിൽ ഉപരാഷ്ട്രപതി എം

ആരോഗ്യമുള്ള ഇന്ത്യയെ സൃഷ്ടിക്കുവാൻ യോഗയെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉപരാഷ്ട്രപതി ഉൌന്നി പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്ട്നാവിസും ചടങ്ങിൽ പങ്കെടുത്തു

കേന്ദ്ര പരിസ്ഥിത്ി ് മന്തി ഹർഷവർദ്ധൻ കേന്ദ്രമന്ത്രി കേണൽ രാജ്യവർദ്ധ്ൻ റാത്തോഡ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കാളികളായി ലക്നൌപ്പിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗും ഉത്തർപ്രദേശ് മുഖ്യമാത്തി യോഗ് ആദിഥ്യനാഥ് നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻക്സ്കരിയും ചെന്നൈയിൽ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവും രുദ്രപ്രയാഗിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു രാജസ്ഥാനിൽ കോട്ടയിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്തു

നാഗാലാൻഡിലെ കൊഹിമയിൽ ഗവർണർ പി

ആചാര്യ യോഗാഭ്യാസത്തിന് ഇന്ദിരാഗന്ധി സ്റ്റേഡിയത്തിൽ നേതൃത്വം കൊടുത്തു ഗോവ അസം മണിപ്പൂർ ഹരിയാന അരുണാചൽപ്രദേശ് എന്നി സംസ്ഥാനങ്ങളിലും യോഗാദിനം ആചരിച്ചു

ശ്രീലങ്കയിലെ കൊളംബെയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു

ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇൻ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്തി നരേന്ദ്രമോദിക്ക് ടിറ്ററിലൂടെ ആശംസകൾ നേർന്നു

ഫിൻലാന്റിലെ ഹെൽസിങ്കിയിൽ നടന്ന ചടങ്ങിൽ ആത്മീയ നേതാവ് ശ്രീ

ആദ്ദേഹത്തോടൊപ്പം സുരിനാം പ്രസിഡന്റ് ഡിസയർ ഡെലാനോ ബൌട്ടേഴ്സും പങ്കെടുത്തു

യോഗക്ലാസിൽ പങ്കെടുത്ത മന്ത്രി അവരുമായി സംവദിക്കുകയും ചെയ്തു ഗർഭിണികളായ സ്ത്രീകൾ യോഗ പരിശീലിക്കുന്നതിലൂടെ പ്രസവ സമയത്ത് ശരീരവും മനസ്സും ശാന്തമായിരിക്കുകയും സുഖപ്രസവം സാധ്യമാവുകയും ചെയ്യും

പേപ്പർ രഹിത ഓഫീസായ വാണിജ്യഭവനിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ഉത്തർപ്രദേശ് എടിഎസ് ഉം മഹാരാഷ്ട്ര എ ടി എസ്സും സംയുക്തമായി നടത്തിയ തിരിച്ചിലിലാണ് പൂനൈയിൽ വച്ച് പ്രതി രമേഷ് ഷാ അറസ്റ്റിലായത്

പരിശീലനം ലഭിച്ച ഭീകരർ സാമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു തദ്ദേശവാസികളെ തട്ടിക്കൊണ്ടുപോകുന്നതുൾപ്പെടെയുള്ള ഉൾഫാ നേതാക്കന്മാരുടെ നടപടികളിൽ അതൃപ്ത്തരായിരുന്നു ക്ലീഴട്ടങ്ങിയവർ

റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യാഥാസ്ഥിതികരും ഉല്പതിഷ്ണുക്കളും തമ്മിൽ തന്നെ ധാരണയുണ്ടാകാത്ത സാഹചരൃത്തിൽ വോട്ടെടുപ്പിന്റെ ഫലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു നിയമവിരുദ്ധമായി കുടിയേറുന്ന കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും കുട്ടികളെയും വേർപെടുത്തി തടവിലാക്കാൻ പാടില്ലെന്നതാണ് പുതിയ നിയമം അനുശ്ലാസിക്കുന്നത് പകരം അവരെ ഒരുമിച്ച് മാത്രമേ തടവിലാക്കാൻ പ്പാടുള്ളു

ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്ക് ആസ്ട്രേലിയ മത്സരം പുരോഗമിക്കുകയാണ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ തുടരുന്നു ഡെൻമാർക്കിനുവേണ്ടി ക്രിസ്ത്യൻ എറിക്സണും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിലേ ജഡിനാക്കുമാണ് ഗോളൂകൾ നേടിയത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി